പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പങ്കെടുക്കും

സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി സിപിഎം

അമേരിക്കൻ പ്രസിഡന്റ് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖരും ഉച്ചകോടിയിൽ സംബന്ധിക്കും

സാർവത്രികവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

പത്രികാ സമർപ്പണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളും രണ്ടെണ്ണം മാത്രമേ പാടുള്ളൂ ഓൺലൈനായി പത്രിക നൽകുന്നവർ ഡൌൺലോഡ് ചെയ്ത് പകർപ്പ് വരണാധികാരിക്ക് നൽകണം കെട്ടിവെയ്ക്കേണ്ട തുകയും ഓൺലൈനായി അടയ്ക്കാം

സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി സിപിഎം അന്തിമ ഘട്ട ചർച്ചകളിൽ കോൺഗ്രസും ബിജെപിയും

രണ്ട് സ്ഥാനാർത്ഥികളെ പിന്നീട് തീരുമാനിക്കും നിലവിലെ അഞ്ച് മന്ത്രിമാരെയും സ്പീക്കർ പി

മുഖ്യമന്ത്രി പിണറായി പ്പിജ്യിൻ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും

കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ക്ട്മ്മിറ്റി യോഗത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടെ ആദ്യ പട്ടിക് പ്പുറ്റ്ത്തിറക്കുമെന്നാണ് സൂചന സ്ഥാനാർത്ഥി നിർണ്ണയ്ക് സ്ട്ര്ബന്ധിച്ച് അവസാന ഘട്ട ചർച്ചകൾ ബിജെപിയിലും പുരോഗമീ്ക്കുകയാണ് ഇന്ന് ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ

തൊഴിൽ നൈപുണ്യമുള്ളവരുടെ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരുവരും ഒപ്പുവച്ചു

ഗ്രാമീണ മേഖലകളിലെ യുവാക്കൾക്കിടയിൽ സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് ഏഴ് ഉദ്യം എക്സ്പ്രസ് മൊബൈൽ വാനുകളുടെ പ്രവർത്തനവും ഇതിനോടൊപ്പം ആരംഭിച്ചു

ഭഗവദ്ഗീതയുടെ അഞ്ച് ലക്ഷത്തിലധികം പകർപ്പുകൾ വിറ്റതിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി വെർചലായി പങ്കെടുക്കും

പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരത്തിലെത്തിയശേഷമുള്ള ആദ്യത്തെ വലിയ വിജയമാണ് ഇത്

വെള്ളിയാഴ്ച ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിടുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു

മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും സംസ്ഥാന പാർട്ടി അദ്ധ്യക്ഷൻ രഞ്ജിത് കുമാർ ദാസിന്റെയും സാന്നിദ്ധ്യത്തിൽ ബിജെപി ഗുവാഹത്തിയിൽ ഔദ്യോഗികമായി പ്രചരണം ആരംഭിച്ചു സംസ്ഥാനത്തുടനീളം ഗ്യാരണ്ടി പ്രചാരണങ്ങൾക്ക് കോൺഗ്രസ് തുടക്കം കുറിക്കുന്നു

കോൺഗ്രസ് കഴിഞ്ഞ തവണ വിജയിച്ച് അഞ്ച് സീറ്റുകളിലുൾപ്പെടെയാണ് ബിജെപി മത്സരിക്കുക

എല്ലാ സംസ്ഥാനങ്ങളിലും തദ്ദേശീയ ഭാഷകൾക്കായുള്ള സർവകലാശാലകളുടെ മാതൃകയിൽ മറാത്തി ഭാഷ സർവകലാശാല ഉടൻ തന്നെ നിലവിൽ വരുമെന്ന് മഹാരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസമന്ത്രി ഉദയ് സമന്ത് അറിയിച്ചു

ആംഗ് പൈ സോണിനെയും ഖിൻ തിരി തെറ്റ്മോണിനെയും കരിമ്പട്ടികയിൽ പെടുത്തിയതായി യു എസ് ട്രഷറി വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു

ഒരംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു

ചാക്കോ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ താൻ നിരാശനാണെന്നും കേന്ദ്ര നേതൃത്വം ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നും ഡൽഹിയിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥാനാർത്ഥികളെ ഗ്രൂപ്പടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നതെന്നും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളല്ലെന്നും ശ്രീ പി

ചാക്കോ കുറ്റപ്പെടുത്തി